പരസ്യപ്രചാരണം ഞായറാഴ്ച ഉവെകിട്ട് അവ സാനിക്കും ബിജെപിയും കോൺഗ്രസും തമ്മിൽ പ്രത്യയശാസ്ത്രപര മായ പോരാട്ടം തുടരുകയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി സ്ത്രീസമത്വത്തിന് വേണ്ടി ന്യരേന്ദ്രമോദി ഗവ നിരവധി കാര്യ ങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് രാജ്യരക്ഷാമന്ത്രി നിർമലാ സീതാ രാമൻ തമിഴ്നാട്ടിലെ വെല്ലൂർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് റദ്ദാ ക്കിയെന്ന വാർത്ത അടിസ്ഥാന രഹിതമാണെന്ന് തെരഞ്ഞെ ടുപ്പ് കമ്മീഷൻ പ്രചാരണത്തിനീടയിൽ വിദ്വേഷപ്രസംഗം നടത്തിയ നേതാ ക്കൾക്കെതിരെ തെര കമ്മീഷൻ കൈക്കൊണ്ട നടപടിയിൽ സുപ്രീംകോടതി സംതൃപ്തി അറിയിച്ചു കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ വിവിധ അപകടങ്ങളിൽ ആറു മരണം ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കിംഗ്സ് ഇലവൻ പഞ്ചാബ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനഘട്ടത്തി ലേക്ക് കടന്നതോടെ തെരഞ്ഞെടുപ്പ് ചൂട് ഉച്ഛസ്ഥായിലായി

ഈ മണ്ഡലങ്ങളിൽ പരസ്യ പ്രചാരണം ഞായറാഴ്ച വൈകീട്ട് അവസാനിക്കും സംസ്ഥാനത്ത് എൽഡിഎഫും യുഡിഎഫും എൻഡിഎ യും പരമാവധി സീറ്റ് ലക്ഷ്യമിട്ട് പ്രചാരണം കൊഴുപ്പിക്കുകയാണ് ദേശീയനേതാക്കൾ വിവിധ മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തി വരുന്നു ബിജെപിയും കോൺഗ്രസും തമ്മിൽ പ്രത്യയശാസ്ത്രപരമായ പോരാട്ടം തുടരുകയാണെന്ന് കോൺഗ്രസ് അധ്യ ക്ഷൻ രാഹുൽഗാന്ധി പറഞ്ഞു നിലവിൽ ബിജെപിയിൽ നിന്നും ആർ എസ്എസിൽ നിന്നും നമ്മുടെ രാജ്യം വൻ ആക്രമണം നേരിടു കയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു എത്യതവണ ആക്രമി ച്ചാലും സ്നേഹവും അഹിംസയും കൊണ്ട് അവർ ചെയ്യുന്ന തെറ്റ് അവരെ ബോധൃപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കൊല്ലം പത്തനാപുരത്ത് യുഡിഎഫ് തെരുഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാ രിക്കുകയായിരുന്നു രാഹുൽഗാന്ധി രാജ്യത്തെ ജനങ്ങളെ മറന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനിൽഅംബാനിക്ക് എല്ലാ സഹാ യവും ചെയ്തു കൊടുത്തുവ്പെന്നും അദ്ദേഹം ആരോപിച്ചു ജന ങ്ങൾക്ക് നൽകിയു ഒരു വാഗ്ദാനവും പ്രധാനമന്ത്രി പാലിച്ചി ല്ലെന്നും രാഹുൽ കുറ്റപ്പെടുത്തി കേരളം രാജ്യത്തിന് മാതൃകയാണ്

ദാരിദൃത്തിനെതിരായ മിന്നലാക്രമണമാണ് കോൺഗ്രസ് ലക്ഷ്യ മെന്നും അദ്ദേഹം പറഞ്ഞു മിനിമം വേതനം ഉറപ്പാക്കുന്ന ന്യായ് പദ്ധതിക്കായി ഇടത്തരക്കാരിൽ നിന്ന് പണം കണ്ടെത്തില്ലെന്നും വൻകിടക്കാരിൽ നിന്നായിരിക്കും തുക കണ്ടെത്തുകയെന്ന് അദ്ദേഹം വ്യക്തമാക്കി രാജ്യത്തെ ഖജനാവിന്റെ താക്കോൽ യുവാക്കളെ ഏൽപിക്കുമെന്നും രാഹുൽഗാന്ധി പറഞ്ഞു കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ കശുവണ്ടി പ്രവർത്ത കരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുമെന്നും അതിനായി അവരു മായി ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിലെ പ്രചരണത്തിന് ശേഷം രാഹുൽഗാന്ധി കെ എം മാണിയുടെ പാലായിലെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ കുടുംബത്തെ അനു ശോചനം അറിയിക്കും വൈകിട്ട് ആലപ്പുഴയിലും തിരുവനന്തപുരത്തും പൊതുയോഗങ്ങ ളിൽ സംസാരിച്ചശേഷം രാത്രി അദ്ദേഹം കണ്ണൂരിലെത്തും നാളെ രാവിലെ യുഡിഎഫ് നേതൃയോഗത്തിൽ രാഹുൽഗാന്ധി പങ്കെടു ക്കും വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളി തെരഞ്ഞെടുപ്പ് പ്രച രണങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും സ്ത്രീസമത്വത്തിന് വേണ്ടി മോദി ഗവൺമെന്റും ബിജെപിയും നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് രാജ്യൂരക്ഷാമന്ത്രി നിർമലാ സീതാരാമൻ പറഞ്ഞു ഇടതുപക്ഷം എപ്പോഴും സ്ത്രീസമത്വത്തെ നിരാകരിച്ചിട്ടേഉള്ളുവെന്നും അവർ വൃക്തമാക്കി കണ്ണൂരിൽ എൻഡിഎ വിജയ്സങ്കൽപ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാ യിരുന്നു കേന്ദ്രമന്ത്രി തമിഴ്നാട്ടിലെ വെല്ലൂർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി യെന്ന വാർത്ത അടിസ്ഥാന രഹിതമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീ ഷൻ അത്തരത്തിൽ ഒരു ഉത്തരവ് പുറത്തിറക്കിയിട്ടില്ലെന്ന് കമ്മീ ഷൻ ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി വെല്ലൂരിലെ ഡിഎംകെ സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ നിന്നും കണക്കിൽപെടാത്ത വൻതുക ആദായനികുതി വകുപ്പ് പിടിച്ചെടുത്തിരുന്നു ഇത്തെ തുടർന്നാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതായി റിപ്പോർട്ടുകൾ വന്നത്

അസം ബീഹാർ ചത്തീസ്ഗഡ് ജമ്മുകശ്മീർ മണിപ്പൂർ ഒഡീ ഷ ത്രിപുര എന്നിവയാണ് രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ

ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തി നായി എത്തിയ മന്ത്രി രാവിലെയാണ് ത്രൂരിനെ സന്ദർശിച്ചത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയ്ക്ക് കണ്ണൂർ ജില്ലയിൽ നിയോഗിച്ച ജീവ നക്കാരുടെ അവസാനഘട്ട പരിശീലന്ം നാളെ രാവിലെ കണ്ണൂർ ജില്ലാ ആസൂത്രണ ഹാളിൽ നടക്കും ഇതുവരെ നടന്ന പരിശീല നപരിപാടിയിൽ പങ്കെടുക്കാത്ത്വർ ഇതിൽ നിർബന്ധമായും പങ്കെ ടുക്കേണ്ടതാണെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു തെരഞ്ഞെടുപ്പ് പ്രച്ചാരണത്തിനിടയിൽ വിദ്ധേഷപ്രസംഗം നട ത്തിയ ഉത്തർപ്പ്ദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബിഎസ്പി അധ്യക്ഷ മാ്യാവതി തുടങ്ങിയ നേതാക്കൾക്കെതിരെ തെരഞ്ഞെ ടുപ്പ് കമ്മീഷൻ കൈക്കൊണ്ട നടപടിയിൽ സുപ്രീംകോടതി സംതൃപ്തി പ്രകടിപ്പിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണർന്നുവെന്ന് തോന്നുന്നതായി കോടതി അഭിപ്രായപ്പെട്ടു

ഉത്തരവിനെതിരെ പ്രത്യേക അപ്പീൽ നൽകാൻ മായാവതിയുടെ അഭിഭാഷകനോട് ഡിവിഷൻ ബെഞ്ച് നിർദേശിച്ചു മുസ്ലിം പളളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്ക ണമെന്ന റിട്ട് ഹർജിയിൽ സുപ്രീംകോടതി കേന്ദ്ര ഗവൺമെന്റിനും വഖഫ് ബോർഡിനും മുസ്ലിം വൃക്തിനിയമ ബോർഡിനും നോട്ടീസ് അയച്ചു ശബരിമല വിധി നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ ഹർജി പരിഗണിക്കുന്നതെന്ന് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ച് അറിയിച്ചു

പൂനൈയിലെ മുഹമ്മദീയ ജുമാ മസ്ജിദിൽ പ്രവേശനം നിഷേധി ച്ചുവെന്ന് കാണിച്ചാണ് ഹർജി

കോഴിക്കോട് പാലക്കാട്ട് ദേശീയപാതയിൽ മലപ്പുറം കൂട്ടിലങ്ങാടിയിൽ ടാങ്കർലോറിയും ഗുഡ്സ് ഓട്ടോയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മൂന്ന് പേർ മരിച്ചു പശ്ചിമബം ഗാൾ സ്വദേശികളായ സൈദുൽഖാൻ എസ് കെ സാദത്ത് എസ് കെ ഷബീറലി എന്നിവരാണ് മരിച്ചത്

രാവിലെ ഇതർസ്ഠസ്ഥാന തൊഴിലാളികളെ തൊഴിലിട ത്തേക്ക് കൊണ്ടു പോകുന്നതിനിടെ ഗുഡ്സ് ഓട്ടോയിൽ ടാങ്കർലോറി ഇടിക്കുകയായിരുന്നു കോഴിക്കോട് കോടഞ്ചേരി നാരങ്ങാത്തോട് പതങ്കയം വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങിയ സഹോദരങ്ങൾ മുങ്ങി മരിച്ചു

കഴിഞ്ഞ ദിവസം ഇവിടെയുണ്ടായ അപകടത്തിൽ ചെമ്മാട് സ്വദേശിയായ വിദ്യാർത്ഥി മരിച്ചിരുന്നു കോഴിക്കോട് പുതിയങ്ങാടിയിൽ ബൈക്കും ജീപ്പും കൂട്ടിയി ടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരിച്ചു

പാലക്കാട് കൊപ്പത്ത് കിണറ്റിൽ നിന്ന് അണ്ണാൻ കുഞ്ഞിന്റെ ജഡം പുറത്തെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ബോധരഹിതനായി ചികിത്സയിലായിരുന്ന മൂന്നാമത്തെ ആളും മരിച്ചു

കൃഷ്ണൻ കുട്ടിയുടെ സഹോദരൻ സുരേന്ദ്രൻ കരിമ്പനക്കൽ സുരേഷ് എന്നിവർ അപകടമുണ്ടായ ഞായറാഴ്ച മരണപ്പെട്ടിരുന്നു ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കിങ്സ് ഇലവൻ പഞ്ചാബ് രാജ സ്ഥാൻ റോയൽസിനെ നേരിടും രാത്രി എട്ടിന് മൊഹാലിയിലാണ് മത്സരം ഇന്നലെ മുംബൈ ഇന്ത്യൻസ് അഞ്ച് വിക്കറ്റിന് ബംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ തോൽപ്പിച്ചു കേരളം ഉൾപ്പെടെ രാജ്യത്ത് എല്ലായിടത്തും ഈ വർഷം കനത്ത മഴ ലഭിക്കുമെന്ന് കേന്ദ്ര ഭൌമമന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു കേരളത്തിൽ കഴിഞ്ഞ വർഷത്തെ പ്പോല്ലെ പ്രളയത്തിന് സാധ്യതയുണ്ടോ എന്ന് ഇപ്പോൾ പറയാനാട്വില്ലെന്നും ഈ മാസം സംസ്ഥാനത്ത് താപനില ഉയർന്നു നിൽക്കൂമെന്നും മന്ത്രാലയം വൃക്തമാക്കി കനത്ത മഴയ്ക്ക് കാരണമാവുന്ന എൽനിനോ പ്രതിഭാസം പസ ഫിക് സമുദ്രത്തിന് മുകളിൽ രൂപപ്പെട്ടിട്ടുണ്ട് ഇത് ജൂലൈയോടെ ദുർബലപ്പെട്ട് കേരളത്തിൽ ഉൾപ്പെടെ കനത്ത മഴ ലഭിക്കുമെന്നും ഭൌമമന്ത്രാലയം സെക്രട്ടറി എം രാജീവൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു

പുഴകളിൽ ജലനിരപ്പ് കുറഞ്ഞതൊടൊപ്പം വനാന്തരങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രകൃതിദത്ത നീരുറവകളും വറ്റിയതോടെ ജില്ലയിൽ കുടിവെളള ക്ഷാമവും രൂക്ഷമാണ്

കാവിലുംപാറ കായക്കൊടി മരുതോങ്കര നരിപ്പറ്റ വാണിമേൽ വളയം പ്രദേശങ്ങളിലും വരൾച്ച രൂക്ഷമാണ് കോഴിക്കോട് കോതി പള്ളിക്കണ്ടി റോഡിൽ ഫർണീച്ചർ കടയ്ക്ക് തീപിടിച്ചു രാവിലെ പതിനൊന്നരയോടെയാണ് അപകടം തൊട്ടടുത്ത മാലിന്യത്തിൽ നിന്നാണ് തീ പടർന്നത്

ബീച്ച് മീഞ്ചന്ത ഫയർ സ്റ്റേഷനുകളിൽ നിന്നെത്തിയ നാല് യൂണിറ്റ് ഫയർഫോഴ്സ് സംഘമാണ് തീയണച്ചത് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയത്തിന്റെ സഹകരണ ത്തോടെ സംഘടിപ്പിക്കുന്ന നവരംങ് ദേശീയ നാടകോത്സവത്തിന് പാലക്കാട് സംഗീത കോളേജിൽ തുടക്കമായി

കേരളത്തിന് പുറമെ കർണ്ണാടക പ്പോണ്ട്ടിച്ചേരി ഡൽഹി എന്നിവിടങ്ങളിലെ നാടക സമിതികളും പങ്കെടുക്കുന്നുണ്ട് പഴശ്ശി ശങ്കരവർമ്മ രാജ സംഗീത പൂരസ്ട്കാരം പ്രസിദ്ധ വയ ലിൻ വാദകൻ നെടുമങ്ങാട് ശിവാനന്ദന് സമ്മാനിച്ചു കണ്ണൂർ മുഴ ക്കുന്ന് മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ചിത്ര കാരൻ കെ

മാരാരാണ് പുരസ്കാരം നൽകിയത് തെക്കൻ കേരളത്തിന് പൂരാ്വേശം പകരുന്ന കൊല്ലംപൂരം വൈകിട്ട് ആശ്രാമം മൈതാനത്ത് നടക്കും ആശ്രാമം ശ്രീകൃഷ്ണസാമി ക്ഷേത്രത്തിലെ വിഷു മഹോത്സവത്തിന് സമാപനം കുറിച്ചാണ് പൂരം അരങ്ങേറു ന്നത്